കോവിഡ് രണ്ടാം വ്യാപനം കൈകാര്യം ചെയ്യുന്നതിന് തയ്യാറെടുപ്പുകളും വാക്സിനേഷനും സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗത്തിൽ അധ്യക്ഷ്യം വഹിച്ച് സ്ഥിതി വിലയിരുത്തുകയായിരുന്നു പ്രധാനമന്ത്രി മരുന്നുകളും ഓക്സിജൻ ലഭ്യതയും വെന്റിലേറ്ററുകളും സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും യോഗം ചർച്ച ചെയ്തു

നേരത്തെ പരിശോധന നടത്തി ശരിയായ രീതിയിൽ ബാക്കി കാര്യങ്ങൾ പിന്തുടർന്നാൽ മരണം കുറയ്ക്കാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

താൽക്കാലിക ആശുപത്രികളും ഐസൊലേഷൻ കേന്ദ്രങ്ങളും വഴി കൂടുതൽ കിടക്കകൾ ലഭ്യമാക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു വിവിധ മരുന്നുകളുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യം നേരിടാൻ രാജ്യത്തെ മരുന്ന് ഉത്പാദനം പരമാവധി പ്രയോജനപ്പെടുത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു റെംഡെസിവീർ ഉൾപ്പെടെ മരുന്നുകളുടെ വിതരണവും പ്രധാനമന്ത്രി വിലയിരുത്തി അംഗീകാരം ലഭിച്ച മെഡിക്കൽ ഓക്സിജൻ പ്ലാന്റുകൾ വേഗത്തിൽ സ്ഥാപിക്കാനും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു

ഒരുലക്ഷം ഓക്സിജൻ സിലിണ്ടറുകൾ ഇതുവരെ സംഭരിച്ചിട്ടുണ്ടെന്നും ഉടൻതന്നെ സംസ്ഥാനങ്ങൾക്ക് ഇത് വിതരണം ചെയ്യുമെന്നും യോഗത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയെ അറിയിച്ചു കോവിഡ് മഹാമാരി നേരിടുന്നതിന് ഓക്സിജൻ സിലണ്ടറിന്റെയും മരുന്നുകളുടെയും മറ്റ് അത്യാവശ്യ ഉപകരണങ്ങളുടെയും ലഭ്യത ഉറപ്പുവരുത്തണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു വാക്സിൻ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിന് സ്വകാര്യ പൊതു മേഖലകളിലെ ദേശീയ ശേഷി പരമാവധി ഉപയോഗപ്പെടുത്താൻ അദ്ദേഹം നിർദ്ദേശം നൽകി

എറണാകുളം ജില്ലയിൽ രോഗികളുടെ എണ്ണം രണ്ടായിരം കവിഞ്ഞു

മലപ്പുറം കോട്ടയം തൃശൂർ കണ്ണൂർ ജില്ലകളിൽ ആയിരത്തിലേറെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചു

പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ അറുനൂറിലേറെയാണ് കോവിഡ് രോഗികൾ

നിയന്ത്രണം കർശനമാക്കാൻ ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി ദര കോഴിക്കോട് ജില്ലയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഇന്നുമുതൽ എല്ലാ ഞായറാഴ്ചകളിലും ജില്ലാ കലക്ടർ ലോക്ഡൌണിന് സമാനമായ പ്രത്യേക നിയന്ത്രണം ഏർപ്പെടുത്തി വളരെ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ജനങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ലെന്ന് കലക്ടർ അറിയിച്ചു കൂടിച്ചേരലുകൾ അഞ്ചുപേരിൽ ചുരുക്കണം

പ്രസ്തുത സ്ഥാപനങ്ങൾ ഒഴികെ എല്ലാവിധ സ്ഥാപനങ്ങളും ബീച്ച് പാർക്ക് ടൂറിസം പ്രദേശങ്ങൾ ഉൾപ്പെടെ പൊതുപ്രദേശങ്ങളും തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല പൊതുഗതാഗത സംവിധാനം സാധാരണ നിലയിൽ പ്രവർത്തിക്കും

പരീക്ഷാർത്ഥികൾ കൃത്യമായ കോവിഡ് പെരുമാറ്റചട്ടം പാലിക്കണമെന്നും കലക്ടർ അറിയിച്ചു ദര കോവിഡ് രോഗികളുടെ എണ്ണം കൂടിയ പശ്ചാത്തലത്തിൽ കോഴിക്കോട് നഗരത്തിൽ സിറ്റി പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടപടി കർശനമാക്കും

പരിശോധനാഫലം അടുത്ത ദിവസങ്ങളിൽ ലഭ്യമാവും ദര കോഴിക്കോട് കോർപ്പറേഷൻ ഇന്ന് അഞ്ച് കേന്ദ്രങ്ങളിൽ മെഗാ വാക്സിനേഷൻ ക്യാമ്പ് നടത്തും

ഇരിട്ടി ചെക്ക് പോസ്റ്റ് പേരാവൂർ താലൂക്ക് ആശുപത്രി മട്ടന്നൂർ യു പി സ്കൂൾ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രി പുളിങ്ങോം കുടുംബാരോഗ്യകേന്ദ്രം എന്നിവിടങ്ങളിലാണ് സൌജന്യ കൊവിഡ് പരിശോധന നടത്തുന്നത് ദര കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഗവൺമെന്റ് മേഖലയിൽ വേങ്ങാട് പ്രാഥമികാരോഗ്യകേന്ദ്രം താവം ചർച്ച് ഹാൾ എന്നിവിടങ്ങളിൽ കോവിഡ് മെഗാ വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കും കോവാക്സിൻ ആണ് ഇവിടങ്ങളിൽ നൽകുക ദേദ മലപ്പുറം ജില്ലയിൽ രണ്ടു ദിവസങ്ങളിലായി നടന്ന കോവിഡ് മെഗാ ടെസ്റ്റിങ്ങ് ഡ്രൈവ് പൂർണ്ണ വിജയമായെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ

ജില്ലയിൽ ഇതുവരെ നാലു ലക്ഷത്തിലധികം പേർ പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചതായും വരുംദിവസങ്ങളിൽ കുത്തിവെയ്പ്പിന് കൂടുതൽ സൌകര്യം ഒരുക്കുമെന്നും ഡി

ദേദ പത്തനംതിട്ട ജില്ലയിൽ രണ്ടുദിവസങ്ങളിലായി പതിനാറായിരത്തോളം പേർക്ക് കോവിഡ് പരിശോധന നടത്തി

ദ്ദേ ഇടുക്കി ജില്ലയിൽ എല്ലാ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളിലെയും ഹോട്ടലുകളിലെയും റസ്റ്റോറന്റുകളിലെയും ജീവനക്കാരുടെ രജിസ്റ്റർ സൂക്ഷിക്കണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു ഇവരെ നിർബന്ധമായും കോവിഡ് പരിശോധനക്ക് വിധേയമാക്കി കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉടമകൾ കൈവശം വെയ്ക്കണം

ജഗതിയിലെ വീട്ടിൽ അദ്ദേഹം നിരീക്ഷണത്തിൽ തുടരും

എൽ ക്രിക്കറ്റിൽ നിലവിൽ ചാമ്പ്യൻമാരായ മുംബൈ ഇന്ത്യൻസിന് ജയം

ചെന്നൈയിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഡൽഹി ക്യാപ്പിറ്റൽസും പഞ്ചാബ് കിംഗ്സും തമ്മിലാണ് മത്സരം

കൊച്ചി ബിനാലെ മാതൃകയിൽ ചിത്രങ്ങളും ശില്പങ്ങളും പ്രദർശിപ്പിക്കുന്ന ഫെസ്റ്റിവെൽ രണ്ടര മാസം നീണ്ടു നിൽക്കും

സിയുടെ ഹയർ സെക്കൻഡറി യോഗ്യത വേണ്ട പൊതുപരീക്ഷയുടെ രണ്ടാം ഘട്ടം ഇന്ന് നടക്കും

കോവിഡ് മാനദണ്ഡം പാലിച്ച് നടത്തുന്ന പരീക്ഷ എഴുതാൻ കോവിഡ് ബാധിതർക്കും ക്വാറന്റീനിൽ കഴിയുന്നവർക്കും അവസരം നൽകും കോവിഡ് അപകടം തുടങ്ങിയ കാരണങ്ങളാൽ രണ്ട് ഘട്ടങ്ങളിലും പരീക്ഷ എഴുതാൻ സാധിക്കാത്തവർക്ക് ഒരു പരീക്ഷ കൂടി നടത്തും ദേദ സംസ്ഥാനത്തെ എല്ലാ വിദ്യാർത്ഥികൾക്കും നീറ്റ് പരീക്ഷ കേരളത്തിൽ തന്നെ എഴുതാൻ ആവശ്യമായ സെന്ററുകൾ ക്രമീകരിക്കാൻ നടപടി എടുക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം

കോവിഡ് രണ്ടാംവരവ് ഭീകരവും വ്യാപനം അതിവേഗവും ആയതിനാൽ തുടർന്നുവരുന്ന പരീക്ഷകൾക്കെല്ലാം സ്വന്തം സംസ്ഥാനത്ത് പരീക്ഷാ സെന്ററുകൾ ക്രമീകരിക്കുന്നതായിരിക്കും ഉത്തമമെന്ന് കൊടിക്കുന്നിൽ പറഞ്ഞു ദേദ പശ്ചിമ ബംഗാളിൽ ഇന്നലെ നടന്ന അഞ്ചാംഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ്